തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും

ഡി എഫ് സ്ഥാനാർത്ഥിയായി ്നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

വികസന ബാങ്ക് സംസ്ഥാനത്ത് എസ്

ഇക്കുറി വേനൽമഴയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

തീ കൊളുത്തി കൊലപ്പെടുത്തി

ഈ മാസം എട്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്

കേരളത്തിനു പുറമെ ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും

ഗോവയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഗുജറാത്തില്ലെ അഞ്ചിടത്തും ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും

രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ യു ഡി

ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിക്കും യു

രാവിലെ കോഴിക്കോട് നിന്നും ഹെലികോപ്ടർ മാർഗ്ഗം കൽപ്പറ്റ എസ്

ജെ സ്കൂൾ മൈതാനത്ത് ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും യു ഡി

പത്രിക സമർപ്പണത്തിനുശേഷം രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുറന്ന വാഹനത്തിൽ രണ്ടു കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തി ഇന്നലെ രാത്രിയാണ് രാഹുൽഗാന്ധി കോഴിക്കോട് കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയത് വൈകിട്ട് മൂന്നു മണിയോടെ അദ്ദേഹം മടങ്ങും

കൽപ്പറ്റ ടൌണും പരിസരവും എസ്

വയനാട് കലക്ട്രേറ്റ് ഇന്ന് പൂർണമായും എസ്

യുടെയും പോലീസിന്റെയും നിയന്ത്രണത്തിലായിരിക്കും

എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സിറ്റിറ്റ് എം

മണ്ഡല്തിൽ എൻ

എ സ്ഥാനാർഥി കെ

പോലീസ് ഒബ്സർവർ മാൻസിംഗ് ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പുരോഗതികൾ വിലയിരുത്തുന്നതിനും മറ്റു മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന പോലീസ് ഒബ്സർവർ മാൻസിംഗ് ഐ

എസ് ജില്ലയിലെത്തി ഇതുവരെ ലഭിച്ച തിരഞ്ഞെടുപ്പ് പരാതികളുടെയും മറ്റും വിശദാംശങ്ങൾ ജില്ലാ കളക്ടറുമായി വിശകലനം ചെയ്തു ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ ആയ മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ ദേവികുളം ഇടുക്കി പീരുമേട് ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ ഇദ്ദേഹം വരും ദിവസങ്ങളിൽ സന്ദർശനം നടത്തും പിണറായി വിജയൻ ആലപ്പുഴ സമ്പന്നർ അതിസമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമാകുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാജ്യം കണ്ടെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാവേലിക്കരയിൽ പറഞ്ഞു കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നവർ പാവപ്പെട്ടവരെ പരിഗണിക്കാതെ കോർപ്പറേറ്റുകൾക്ക് മുന്തിയ പരിഗണന നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് ഏതോ സ്വപ്നലോകത്താണെന്നും കോൺഗ്രസിന്റെ പ്രമാണിമാർക്ക് മത്സരിക്കാൻപോലും സീറ്റു കിട്ടാത്ത അവസ്ഥയാണെങ്കിലും വീമ്പു പറച്ചിലിനു കുറവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ജയിക്കാൻവേണ്ടിയുട്ടണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പതിച്ച പോസ്റ്ററുകൾ സ്ഥാപിച്ച ബാനറുകൾ ബോർഡുകൾ സ്തൂപങ്ങൾ ചുവരെഴുത്തുകൾ പണം കൈമാറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് സിവിജിലിൽ കൂടുതലായും ലഭിച്ചിരിക്കുന്നത്

ഡി ബി

ഡി ബി പ്രവചിക്കുന്നത്

എൽ

എല്ലാ വിഷയങ്ങളുടേയും മൂല്യനിർണ്ണയം ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും

ഈ മാസം അവസാനത്തോടെ മൂല്യനിർണ്ണയ്ക്കപ്പൂർത്തിയാക്കി മേയിൽ ഫലം പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്

ആലപ്പുഴയിൽ ഉയർന്ന താപനിലയിൽ മൂന്നു മുതൽ നാലു ഡിഗ്രി വരെ വർദ്ധനയുണ്ടാകും വയനാട് ഒഴികെ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്നു വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരും

കാസർകോഡ് ജില്ലയിൽ ഇതുവരെ വേനൽമഴ ലഭിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്

തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

ബിയ്യം റഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മൂന്ന് ഷട്ടറുകൾക്ക് ചോർച്ചയുള്ളതിനെത്തുടർന്നാണ് കാഞ്ഞിരമുക്ക് പുഴയിൽനിന്ന് കോൾപാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഇത് സമീപവാസികളുടെ കുടിവെള്ള ലഭൃത തൂകരാറിലാക്കിയതായാണ് സൂചന

പ്രതിയായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഉമ്മൻചാണ്ടി ഗാഡ്ഗിൽ റിപ്പോർട്ട് സംബന്ധിച്ചു കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജ്യൻ കാര്യങ്ങൾ പഠിച്ചശേഷം മാത്രം സംസാരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നില്ലെന്നും കേരളം നിർദ്ദേശിച്ച മാറ്റങ്ങൾ അംഗീകരിച്ചാണ് കേന്ദ്രഗവൺമെന്റ് അന്തിമ വിജ്ഞാപനമിറക്കിയതെന്നും ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് പറഞ്ഞു

തലശ്ശേരിയിലും ധർമ്മടത്തും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ സ്തുത്യർഹമായ പങ്കു വഹിച്ച സഖാവ്വായിരുന്നു പുഞ്ചയിൽ എന്ന് ശ്രീ പിണറായി വിജയൻ അനുശോപ്പിന് സന്ദേശത്തിൽ പറഞ്ഞു